മറ്റു ജില്ലകൾ ഓറഞ്ച് സോണിലെന്നും മുഖ്യമന്ത്രി

ഈ ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കർക്കശമായിരിക്കും

സിമന്റ് കട്ടപിടിച്ചുപോകാതിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ കടകൾ തുറന്ന് പരിശോധിക്കുന്നതിന് സൌകര്യമൊരുക്കുന്ന കാര്യം പരിശോധിക്കും

പഴവർഗ്ഗങ്ങളുടെയും മറ്റും വില വർധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട്

സമൂഹവ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കാൻ ആരോഗ്യപ്രവർത്തകർ പൊലീസ് ഹോം ഡെലിവറി നടത്തുന്നവർ സന്നദ്ധ പ്രവർത്തകർ അതിഥി തൊഴിലാളികൾ എന്നിവർക്കിടയിൽ റാൻഡമായി ആന്റിബോഡി ടെസ്റ്റ് നടത്തും വിദേശങ്ങളിൽ അവശ്യമരുന്നുകൾക്ക് ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് മരുന്ന് എത്തിക്കാൻ കൊറിയർ സർവീസ് ലഭ്യമാക്കാമെന്ന് ഡിഎച്ച്എൽ കൊറിയർ കമ്പനി നോർക്ക റൂട്ട്സിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മൂന്നാംഘട്ടത്തിൽ സംസ്ഥാനത്ത് രോഗവ്യാപനവും സാമൂഹ്യവ്യാപനവും ഉണ്ടായിട്ടില്ലെങ്കിലും ഭീഷണി തുടരുക തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇടുക്കി ജില്ലയിലെ നാലു പേർക്കും കോഴിക്കോട് കോട്ടയം ജില്ലകളിലെ രണ്ടു പേർക്ക് വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

കാസർഗോഡ് ജില്ലയിലെ ആറു പേരുടേയും മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ ഓരോരുത്തരുടേയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്

ഇതോടെ രോഗബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴായി രേര നിയന്ത്രണം ലംഘിച്ച് സംസ്ഥാന അതിർത്തികളിലൂടെ ആളുകൾ കടക്കുന്നത് തടയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി

ദേദ തമിഴ്നാട് കേരള അതിർത്തി പ്രദേശമായ മലക്കപ്പാറയിലെ ഊടുവഴികളിലൂടെ കേരളത്തിലേക്ക് കടന്ന് കയറ്റം തടയാൻ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന ശക്തമാക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് നിർദ്ദേശം നൽകി രുമ വയനാട് ജില്ലാ അതിർത്തികളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോ

ജില്ലയിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിലേക്ക് അവശ്യസാധനങ്ങളെടുക്കാൻ പോകുന്ന ചരക്ക് വാഹന ഡ്രൈവർമാരെയും ക്ലീനർമാരെയും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും

ഇതോടനുബന്ധിച്ച് രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്ന പരിപാടിയ്ക്കിടയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനും നടപ്പാക്കുന്നതിനും ആയി ഗ്രാമസ്വരാജ് പോർട്ടലും മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും

ദരദ വിശുദ്ധ റമദാൻ വ്രതം ആരംഭിച്ചു

ഈ നാളുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവർ ആരാധനകളിലും ദാനദർമങ്ങളിലും കൂടുതൽ സജീവമാകും ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് പള്ളികൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഇത്തവണ വീടുകളിലായിരിക്കും ആരാധനാകർമങ്ങൾ സമൂഹ നോമ്പ്തുറകളും വേണ്ടെന്ന് വെക്കും തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ പ്രത്യേക പ്രാർഥനകൾ വീടുകളിൽ നിർവഹിക്കണമെന്ന് പണ്ഡിതന്മാരും മത നേതാക്കളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിലും ഇന്നാണ് വ്രതാരംഭം

രുമ അടച്ചുപൂട്ടൽ ലംഘനവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ച തുക സ്വീകരിച്ച് വിട്ടുനൽകാൻ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി

രുമ എറണാകുളം നഗരത്തിലെ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളായ കലൂർ സൌത്ത് പനയപ്പള്ളി ഡിവിഷനുകളിൽ ജില്ലാഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി